ക്ഷേത്രനട ഇന്ന് ത്ത്രി അടയ്ക്കും

പ കൂടുതൽ വിവരങ്ങളൂമായി കാസർഗോഡ് ആകാശവാണി പ്രതിനിധി പി

പരീക്ഷ എഴുതിയ സ്കൂളിലെ അധ്യാപകൻ നിഷാദ് വി മുഹമ്മദ് പരീക്ഷാ ചുമതലയുണ്ടാ യിരുന്ന അധ്യാപകൻ പി

ഇതിനിടെ ഒളിവിൽ പോയ അധ്യാപകർ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്